പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു

മേഖലയിലെ ഭീകരരുടെ ഒളിത്താവളം സുരക്ഷാ സേന തകർത്തു

പഞ്ചാബിനെതിരെ ബൌളിംഗ് തെരഞ്ഞെടുത്തു

സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷിക ദിനമായ നാളെ ഏകതാ പ്രതിമ സമുച്ചയത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കും പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഗുജറാത്തിലെ കെവാധിയയിൽ ഏകതാ പ്രതിമക്ക് സമീപം ഇന്ന് ഉദ്ഘാടനം ചെയ്ത ജംഗിൾ സഫാരി പദ്ധതി റെക്കോർഡ് സമയത്തിനുള്ളിൽ ആണ് പൂർത്തീകരിച്ചത്

കേവാദിയിലെ ഏക്കർ സ്ഥലത്ത് സജ്ജീകരിച്ചിരിക്കുന്ന ആരോഗ്യ വനത്തിൽ യോഗ ആയുർവേദം ധ്യാനം എന്നിവയ്ക്ക് സൌകര്യങ്ങൾ ഉണ്ടായിരിക്കും

കേരളത്തിലെ പ്രകൃതി ചികിത്സയ്ക്ക് പുറമേ സുവനീർ ഷോപ്പുകൾ ഭക്ഷണശാലകൾ തുടങ്ങിയവയും പദ്ധതിയുടെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട്

രാഷ്ട്രീയ ഏകത ദിനാചരണത്തിന് ഭാഗമായി സംഘടിപ്പിക്കുന്ന ഏകത പരേഡിലും പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും

കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ പ്രാദേശിക ഭരണകൂടങ്ങൾ മുൻ ധനകാര്യ കമ്മീഷനുകളിലെ അധൃക്ഷന്മാർ അംഗങ്ങൾ കമ്മീഷൻ ഉപദേശക സമിതി അംഗങ്ങൾ വിവിധ മേഖലയിലെ പ്രമുഖർ അക്കാദമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദഗ്ദർ തുടങ്ങിയവരുമായി പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ വിശദമായ ചർച്ചകൾ നടത്തിയിരുന്നു

റിപ്പോർട്ടിൻമേൽ സ്വീകരിച്ച നടപടികളുടെ വിവ്രങ്ങള്ടക്കം കേന്ദ്ര ധനമന്ത്രി റിപ്പോർട്ട് പാർലമെന്റ് മുൻപാകെ ക്സ്മർപ്പിക്കും എൻ കെ സിംഗ് അധ്യക്ഷനായി രാഷ്ട്രപതി രൂപം നൽകിയ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിൽ മറ്റ് നാല് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്

രഹസ്യ വിവരത്തെ തുടർന്ന് ജമ്മുകാശ്മീർ പോലീസും രാഷ്ട്രീയ റൈഫിൾസിന്റെ മുപ്പത്തിയെട്ടാം ബറ്റാലിയനും ചേർന്നു നടത്തിയ സംയുക്ത തിരച്ചിലിൽ ഒളിത്താവളത്തിൽ നിന്നും നിരവധി ആയുധങ്ങളും സ്ഫോടകവസ്തുക്കളും കണ്ടെടുത്തു വനമേഖലയിൽ ഭൌമോപരിതലത്തിനു താഴെ കല്ല് ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്ന കേന്ദ്രത്തിൽ നിന്നും രണ്ട് എ

മത്സ്യബന്ധന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നവീൻ കുമാർ ചൌധരി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ആത്മനിർഭർ ഭാരതിന് കീഴിൽ അടുത്തിടെ ആവിഷ്കരിച്ച പ്രധാന മന്ത്രി മത്സ്യ സമ്പദാ പദ്ധതി മത്സ്യബന്ധന മ്മേഖ്ലയിൽ സമൂലമായ വികസനത്തിന് വഴിവെക്കുമെന്ന് കൃദ്ഘാടനവേളയിൽ അദ്ദേഹം പറഞ്ഞു

ഇതിന്റെ ഭാഗമായി മഹാരാഷ്ട്രയിലെ സംഗ്ലി ജില്ലയിലെ നാല് പ്രദേശങ്ങളിൽ എൻ

എ

മൃാന്മാർ ഭൂട്ടാൻ നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നായി സ്വർണ്ണം കടത്തിക്കൊണ്ട് വന്ന സംഘവുമായി ബന്ധമുണ്ടെന്ന് ആരോപണമുള്ളവരുടെ സ്ഥലങ്ങളിലാണ് അന്വേഷണ സംഘം തിരച്ചിൽ നടത്തിയത്

എന്നാൽ ഈ വാർത്ത വ്യാജമാണെന്ന് സേനാ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചുവെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ട്വീറ്റ് ചെയ്തു

ഇന്ന് ആറ് പുതിയ ഹോട്ട് സ്പോട്ടുകളാണുള്ളത്

ഒരു സമയം ഓരോ കേന്ദ്രത്തിലും പരമാവധി അനുവദിക്കാവുന്ന ആൾക്കാരുടെ എണ്ണവും നിജപ്പെടുത്തി

ടി ഐ

തദ്ദേശസ്ഥാപന അദ്ധ്യക്ഷ പദവി സംവരണം ഒരാഴ്ചയ്ക്കുള്ളിൽ നിശ്ചയിക്കും

തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്ലാസ്റ്റിക് പി വി സി തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്

ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് കിംഗ്സ് ഇലവൻ പഞ്ചാബിനെ ബാറ്റിംഗിനച്ചു